നവീകരിക്കാനും കേന്ദ്രം നൃടപ്ടികൾ പ്രഖ്യാപിച്ചു

ആധാർ നിർബന്ധമാക്കി

കാലാവധി ഇന്ന് അവസാനിക്കും ഫ്ളാറ്റ് ഉടമകൾ റിലേ സത്യാഗ്രഹത്തിൽ

ഇന്ത്യയിൽ ന്യൂനപക്ഷ സമൂഹം സുരക്ഷിതരായിരുന്നു

ജാതി യുടെയോ മതത്തിന്റെയോ പേരിൽ ജനങ്ങൾ ഇന്ത്യയിൽ വിഭ ജിക്കപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

എന്നാൽ പാക്കിസ്ഥാനിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശ ലംഘനമാണ് ഉണ്ടാകുന്നതെന്നും സൂറത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു

താഴ്വരയിൽ ഏർപ്പെടുത്തിയിരുന്ന പോലീസ് നിയന്ത്ര ണങ്ങൾ ഭൂരിഭാഗവും പിൻവലിച്ചതായി ് ഒര്ദ്യോഗിക വൃത്തങ്ങൾ അറിയി ച്ചു

കയറ്റുമതിക്കാർക്കുള്ള ജിഎസ്ടി ഇൻപുട്ട് ടാക്സ് ക്രഡിറ്റ് റീ ഫണ്ടിന് ഈ മാസം അവസാനത്തോടെ ഇലക്ട്രോണിക്സ് സംവിധാനം നിലവിൽ വരും

ആധാർ വിവരങ്ങൾ നൽകാൻ വിസമ്മതമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തിയാകും രജിസ്ട്രേഷൻ

വരുമാനം കുറയുമെന്നാണ് സംസ്ഥാനങ്ങളുടെ ആശങ്ക

സിംഗിന്റെ നേതൃത്വത്തിലുള്ള പിത്രിനഞ്ചാമത് ധനകാര്യ കമ്മീ ഷൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്ട്മുതി ഇറാനിയുമായും മന്ത്രാല യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ച്ചർച്ച നടത്തി അംഗൻവാടി സേവനങ്ങൾ പോഷ്ണം സ്ത്രീ ക്ഷേമം സ്ത്രീ സുരക്ഷ സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയ്ക്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധ തികൾക്കായി നീക്കിവച്ച തിരുക് വർദ്ധിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വിശദമായി ചർച്ച ചെയ്തു സാമ്പത്തിക കൈമാറ്റ പ്രക്രിയകളിൽ ലിംഗ സമത്വം കൊണ്ടുവരണ മെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്

ഇന്ത്യയും സ്വിറ്റ്സർലൻഡുമായുള്ള വ്യാപാര സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് രാഷ്ട്രപതിയുടെ അഞ്ച് ദിവസത്തെ സന്ദർശനം ഗാന്ധിജിയുടെ അഹിംസസമാധാനം പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതം തുടങ്ങിയ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ഇന്നലെ വൈകു ന്നേരം ആറ് മണിയോടെയാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെയ്പ്പ് ഉണ്ടായത് മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു വെടിവെയ്പ്പ്

എയർ സെൽ മാക്സിസ് കേസ്സിൽ കുറ്റാരോപിതുനുകൃ കാർത്തി ചിദംബരത്തിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ഭാസ്കര് രാമ്നെയും ഭാര്യ പത്മ ഭാസ്കര രാമ നെയും കേസ്സുമായി ബന്ധപ്പെട്ട് ഇ്

ചോദ്യം ചെയ്തു

പതിനാറാമതത് വിദേശകാര്യാലയതല സംവാദത്തിൽ പങ്കെടുക്കാനായാണ് സന്ദർശനം

ഇറാൻ വിദേശകാര്യ മന്ത്രി ജാവേദ് സരീഫുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു

ധരംശാലയിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് ആദ്യമത്സരം

എട്ടുകളികളിൽ ഇന്ത്യയും അഞ്ചെണ്ണത്തിൽ ദക്ഷിണാഫ്രിക്കയും ജയിച്ചു

യുടെ ട്വിന്റി ട്വിന്റി റാംങ്കിംങ്ങിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നിലാണ് ഇന്ത്യ എങ്കിലും ഏറ്റവും കൂടുത്തൽ സാധ്യത കല്പിക്കുന്നത് ഇന്ത്യൻ ടീമിനാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം സ്വീഡായ ഡെൻമാർക്കിന്റെ വിക്ടർ സെവൻ ഡെസനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ കിരീടം നേടിയത്

ഒഴിഞ്ഞുപോകില്ലാ എന്ന് അറിയിച്ച് റിലേ സത്യാഗ്രഹത്തിലാണ് ഫ്ളാറ്റ് ഉടമകൾ

ഫ്ളാറ്റുകൾ പൊളിക്കാൻ താല്പര്യ പത്രം ക്ഷണിച്ചുകൊണ്ട് നഗരസഭ നൽകിയ പരസ്യത്തിന് ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് നാളെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും സമരം ചെയ്യുന്ന ഫ്ളാറ്റ് ഉടമകൾക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ അറിയിച്ചു

തുടർച്ചയായ അവധിദിനങ്ങൾ കാരണമാണ് പണം അക്കൌണ്ടുകളിൽ എത്താൻ വൈകിയത്

അഫ്ഗാൻ പാക് മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഹംസ കൊല്ലപ്പെട്ടതെന്ന് വൈറ്റ്ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞു

ആക്രമണത്തിൽ വൻ തീപിടുത്തവും സ്ഫോടനവു മാണ് എണ്ണ സംസ്കരണ കേന്ദ്രത്തിൽ ഉണ്ടായത്